ചീഫ് ജസ്റ്റിസ് എസ്

ബോബ്ഡെ അധ്യക്ഷനായ ഒമ്പതംഗ ബെഞ്ചിന്റേതാണ് വിധി

സംസ്ഥാനത്ത് റോഡപകട മരണങ്ങളിൽ കഴിഞ്ഞ വർഷം നേരിയ വർദ്ധന ഉണ്ടായതായി ഗതാഗതമന്ത്രി എ

വിദ്യാർത്ഥികളുടെ സുരക്ഷയുടെ ഭാഗമായി സ്കൂൾ ബസുകളിൽ ആയമാരുടെ സേവനം ലഭ്യമാക്കാത്ത വിദ്യാലയങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു

റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിസൈൻ എന്നിവയിൽ പുതിയ ഗവൺമെന്റ് കോഴ്സുകൾ സ്വാശ്രയ രീതിയിൽ ഈ വർഷം മുതൽ ആരംഭിച്ചിട്ടുണ്ട്

ഈ വിദ്യാർഥിനിയുടെ അടുത്ത ഫലം കൂടി നെഗറ്റീവ് ആയാൽ തുടർനടപടികൾ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കും

സ്വർണ്ണവില കുറഞ്ഞു

സംസ്ഥാനത്ത് ഇന്ധനവില വീണ്ടും കുറഞ്ഞു